വാർത്തകൾ വിശദമായി രണ്ടു ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനെത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തും

കൂടുതൽ വിവരങ്ങളുമായി സബിതാ ആനന്ദ് വോയ്സ് ദേദ വ്യാപാരം നിക്ഷേപം പ്രതിരോധം സുരക്ഷ ഭീകരതയ്ക്കെതിരായ പോരാട്ടം ഊർജ്ജസുരക്ഷ ഇൻഡോ പെസിഫിക്ക് മേഖലയിലെ സ്ഥിതി തുടങ്ങി ഉഭയകക്ഷി മേഖലാ വിഷയങ്ങൾ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യും ഇന്ത്യയും അമേരിക്കയും ഉഭയകക്ഷി കരാറുകളിലും ഒപ്പുവയ്ക്കും ഇവയിലേറെയും പ്രതിരോധ ഊർജ്ജ മേഖലയിലാണ്

രാഷ്ട്രപതിഭവന്റെ തിരുമുറ്റത്ത് രാവിലെ ആചാരപരമായ വരവേല്പോടെയാണ് ട്രംപിന്റെയും പ്രഥമ വനിതയുടെയും രണ്ടാം ദിവസത്തെ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് തുടർന്ന് മഹാത്മാഗാന്ധി സമാധി സ്ഥലമായ രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് അവർ ആദരാഞ്ജലി അർപ്പിക്കും ഇതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച തുടർന്ന് യു എസ് പ്രസിഡന്റിന് നരേന്ദ്രമോദി ഉച്ചവിരുന്ന് നൽകും വൈകിട്ട് ട്രംപ് രാഷ്ട്രപതിഭവനിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായി കൂടിക്കാഴ്ച നടത്തും ട്രംപിനും സംഘാംഗങ്ങൾക്കും രാഷ്ട്രപതി അത്താഴവിരുന്ന് നൽകും ഇതിനുശേഷം ട്രംപും കുടുംബാംഗങ്ങളും ഇന്ത്യാ സന്ദർശനം പൂർത്തിയാക്കി അമേരിക്കയിലേക്ക് തിരിച്ചുപോകും ന്യൂസ് ഡെസ്ക് ആകാശവാണി ദേദ ട്രംപും ഭാര്യ മെലനിയ ഉൾപ്പെടെ കുടുംബാംഗങ്ങളും ഇന്നലെ വൈകിട്ട് താജ്മഹൽ സന്ദർശിച്ചു ചരിത്ര സ്മാരകത്തിൽ അവർ ഒരു മണിക്കൂറോളം ചെലവഴിച്ചു

ഇന്ത്യയുടെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ കാലാതീതമായ മുദ്ര ഇന്ത്യക്ക് നന്ദി ഈ വാക്കുകളാണ് താജ്മഹൽ കണ്ടശേഷം ട്രംപ് സന്ദർശക പുസ്തകത്തിൽ കുറിച്ചത് ദദദ വടക്കു കിഴക്കൻ ഡൽഹിയിൽ അക്രമസംഭവമുണ്ടായ പ്രദേശങ്ങളിൽ ക്രമസമാധാനം ഉറപ്പുവരുത്താൻ ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ പൊലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി സ്ഥിതി നിരീക്ഷിച്ചുവരികയാണെന്ന് ലഫ്റ്റനന്റ് ഗവർണർ ട്വിറ്ററിൽ അറിയിച്ചു സമാധാനവും സഹവർത്തിത്വവും നിലനിർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ നടപടിയെടുക്കണമെന്ന് ലഫ്റ്റനന്റ് ഗവർണറോടും ആഭ്യന്തരമന്ത്രി അമിത് ഷായോടും നേരത്തെ മുഖ്യമന്ത്രി അരവിന്ദ് കെജരിവാൾ അഭ്യർത്ഥിച്ചിരുന്നു വടക്കു കിഴക്കൻ ഡൽഹിയുടെ ചില പ്രദേശങ്ങളിൽ ഇരുവിഭാഗം ആളുകൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ മരിച്ചവരിൽ പൊലീസ് കോൺസ്റ്റബിളും ഉൾപ്പെടുന്നു പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വകാര്യ സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകുകയും പരീക്ഷകൾ മാറ്റിവെക്കുകയും ചെയ്തു ദേദ വൈവിധ്യങ്ങൾക്കിടയിലെ ഏകത്വമാണ് ഇന്ത്യയുടെ മുഖമുദ്രയെന്നും അറിവിന്റെയും വിവേകത്തിന്റെയും പാരമ്പര്യമാണ് ഇന്ത്യൻ സംസ്കാരത്തെ നയിക്കുന്നതെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു നെഹ്റു യുവകേന്ദ്ര സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കശ്മീരി യുവജന വിനിമയ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ദേദ ആഗോളവത്കരണം രാജ്യത്തിന്റെ കാർഷികമേഖലയെ തളർത്തുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരള കർഷക സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

കെ രാഗേഷ് എം

യെ സംസ്ഥാന പ്രസിഡന്റായും കെ എൻ ബാലഗോപാലിനെ സെക്രട്ടറിയായും സമ്മേളനം തെരഞ്ഞെടുത്തു ദേദ രാജ്യത്ത് നടക്കുന്ന സാമ്പത്തിക സെൻസസിന് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററുമായി ബന്ധമില്ലെന്ന് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് കേരള ലക്ഷദ്വീപ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ സുനിതാ ഭാസ്കർ പറഞ്ഞു സാമ്പത്തിക സെൻസസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്കുവേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ എൻ പി ആറിനെ കുറിച്ച് പരാമർശമില്ലെന്നും അവർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

സംസ്ഥാനത്ത് സാമ്പത്തിക സെൻസസിന്റെ നടത്തിപ്പിന് വടക്കൻ ജില്ലകളിൽ നിന്ന് കാര്യമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നുവെന്നും സംസ്ഥാനത്തെ പല പ്രദേശങ്ങളിലും സമാനമായ സ്ഥിതി വിശേഷമുണ്ടെന്നും അവർ പറഞ്ഞു വ്യക്തിയെയോ കുടുംബത്തെയോ സ്ഥാപനത്തിന്റെ ഉടമയെയോ സംബന്ധിച്ച് സാമ്പത്തിക സെൻസസിൽ ശേഖരിക്കുന്ന വിവരങ്ങൾ പൂർണമായും രഹസ്യമായി സൂക്ഷിക്കുമെന്നും ഗവൺമെന്റിന്റെ ഇതര വകുപ്പുകൾ ഉൾപ്പെടെ ആർക്കും കൈമാറില്ലെന്നും അവർ വ്യക്തമാക്കി

സ്കൂൾ മാനേജർ മാഗി അരൂജ ട്രസ്റ്റ് പ്രസിഡന്റ് മെൽബിൻ ഡിക്രൂസ് എന്നിവരാണ് അറസ്റ്റിലായത്

അറസ്റ്റിലായ തോപ്പുംപടിയിലെ അരൂജ ലിറ്റിൽ സ്റ്റാഴ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരീക്ഷ എഴുതാൻ കഴിയാതിരുന്നത് പ്രതിഷേധ സൂചകമായി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നാട്ടുകാരും സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ദരദ പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികളെ വിദ്യാലയത്തിൽ ചേർക്കുമ്പോൾ രക്ഷിതാക്കൾ വേണ്ടത്ര ശ്രദ്ധ പുലർത്തണമെന്ന് എറണാകുളം ജില്ലാ കലക്ടർ എസ്

സ്കൂളുകളുടെ പശ്ചാത്തലവും നിയമപരമായ അംഗീകാരവും രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ദേദ ഇന്ന് ദേശീയ വിര വിമുക്ത ദിനം

ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യ കേന്ദ്രങ്ങളിലും അംഗൺവാടികളിലും ബോധവൽക്കരണ പരിപാടികളും നടക്കും

ദേദ കൊച്ചിയിൽ കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോകുലം കേരള പോരാട്ടം സമനിലയിലായി ഇരു ടീമുകളും ഓരോ ഗോൾ നേടി

എട്ട് കളികളിൽ നിന്ന് പതിനൊന്ന് പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് രണ്ടാമതാണ് ദരദ നൈപുണ്യമത്സരത്തിലൂടെ ഉയർന്നു വന്ന സർഗ്ഗശേഷിക്ക് ആവശ്യമായ പ്രോത്സാഹനത്തിനൊപ്പം നവ സാങ്കേതിക മേഖലകളിലെ പരിശീലനം വഴി കൂടുതൽ നൈപുണ്യ വികസനമുറപ്പാക്കുന്നതിന് ഗവൺമെന്റ് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കോഴിക്കോട്ട് ഇന്ത്യ സ്കിൽസ് കേരള നൈപുണ്യ മത്സരങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഇന്ത്യ സ്കിൽസിന്റെ സമ്മാനത്തുക വിപുലമാക്കുന്നതിനെക്കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന മന്ത്രി ടി

രാമകൃഷ്ണൻ വ്യക്തമാക്കി ദരദ മാനേജ്മെന്റ് സ്കൂളുകളിലെ അധ്യാപക നിയമനം ഗവൺമെന്റ് അറിയണമെന്ന് പറഞ്ഞത് ഗവൺമെന്റ് നൽകുന്ന ശമ്പളം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണെന്ന് മന്ത്രി ടി

സമഗ്ര ശിക്ഷാ കേരളം പഠനോത്സവത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം പൂനൂർ ജി എം യു പി സ്കൂളിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദദദ സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ രജതജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പ്രദർശന വിപണനമേളയ്ക്ക് പാലക്കാട് കോട്ട മൈതാനത്ത് തുടക്കമായി

ചെറുകിട കർഷകർക്ക് നൂതന സാങ്കേതിക സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനു പിന്നോക്കവിഭാഗ കോർപ്പറേഷന്റെ സഹായം ആവശ്യമാണെന്നും കർഷകരുടെയും തൊഴിലാളികളുടെയും വളർച്ചയിൽ പിന്നാക്ക വിഭാഗ കോർപ്പറേഷന് വലിയ പങ്കുണ്ടെന്നും മന്ത്രി പറഞ്ഞു ദദദ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ആധാർ സേവാകേന്ദ്രം ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും

ദദ സപ്പൈകോ നെല്ല് സംഭരണത്തിന്റെ രണ്ടാംഘട്ട ഓൺലൈൻ രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കും

ഈ സീസണിൽ കൃഷിതുടങ്ങിയവരടക്കം ആരും വിട്ടുപോകാതെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് അധികൃതർ അറിയിച്ചു ദുദ സ്വർണ്ണ കള്ളക്കടത്തുകേസിൽ ഉൾപ്പെട്ട രണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറേറ്റിലെ സൂപ്രണ്ട് ബി രാധാകൃഷ്ണൻ ഇൻസ്പെക്ടർ രാഹുൽ എന്നിവരെയാണ് പിരിച്ചുവിട്ടത്

രാധാകൃഷ്ണൻ ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും രാഹുൽ ഒളിവിലുമാണ് ദേദ യു ഡി എഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും കോൺഗ്രസ് രാഷ്ട്രീയ കാര്യ സമിതി യോഗത്തിനുശേഷം നേതാക്കൾക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസം കേരള കോൺഗ്രസിലെ പിളർപ്പ് എന്നിവ ചർച്ചാ വിഷയമായേക്കും ദ്ദേ മുസ്ലിം ലീഗ് കോൺഗ്രസിനെ കുറിച്ച് ആശങ്ക അറിയിച്ചിട്ടില്ലെന്ന് കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തിരുവനന്തപുരത്ത് അറിയിച്ചു തന്നെ സന്ദർശിച്ച ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി യു ഡി എഫിലെ അസ്വാരസ്യങ്ങൾ പറഞ്ഞുതീർക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നും കെ

കോൺഗ്രസിൽ അസ്വാരസ്യങ്ങളില്ലെന്നും അതു മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി ദരദ പൌരത്വനിയമത്തിനെതിരായി നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് ഒപ്പമുണ്ടെന്ന് വരുത്തുകയും അതേ സമയം സംസ്ഥാനത്ത് പ്രക്ഷോഭത്തിലേർപ്പെടുന്നവർക്കെതിരേ കേസെടുക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെത് ഇരട്ടത്താപ്പ് നയമാണെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി പറഞ്ഞു പൌരത്വനിയമത്തിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ സംസ്ഥാനത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടേയും കേസെടുത്തതിന്റേയും കണക്കു പുറത്തുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പൌരത്വനിയമത്തിനും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ജനദ്രോഹ നയങ്ങൾക്കുമെതിരേ കണ്ണൂർ ഡിസിസി പ്രസിഡന്റ് സതീശൻ പാച്ചേനി നടത്തിയ സഹനസമര പദയാത്രയുടെ സമാപനറാലി കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉമ്മൻ ചാണ്ടി ദരദ വയനാട് ജില്ലയിൽ രണ്ടു മാസത്തിനിടെ കുരങ്ങു പനി ബാധിച്ചവരുടെ എണ്ണം ഒമ്പതായി ഉയർന്ന സാഹചര്യത്തിൽ കുരങ്ങ് പനിക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ ഡോ